സിഎജി റിപ്പോർട്ടിനെതിരെ ്രമുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം നിയമസഭ പാസാക്കി ് പ്രമേയത്തെ എതിർത്ത് അവസാന പ്രതിപക്ഷം

ജി റിപ്പോർട്ടിന് എതിരായി പ്രമുഖ്യമ്ന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം നിയമസിഭൂ പാസാക്കി പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെയാണ് പ്രമേയം പാസാക്കിയത്

ഈ സാഹചരൃത്തിൽ റിപ്പോർട്ടിൽ കിഫ്ബിയെ ക്കുറിച്ച് സി

ശൂന്യവേളയിൽ സ്പീക്കർ പി

സഭയുടെ ശാസന ബഹുമാനപൂർവം സ്വീകരിക്കുകയാണെന്ന് പി

ഡി എഫും മൂന്നിടത്ത് എൽ

ഐപിഎസ് പദവിയുള്ള ഉദ്യോഗസ്ഥ കേസ്സ് അന്വേഷിക്കണമെന്നും കുട്ടിയുടെ സംരക്ഷണം കേന്ദ്ര വനിതാകമ്മീഷൻ ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു